സൈന്യത്തിന്റെ നടപടിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

സഹായത്തിന്റെ രണ്ടാം ഗഡു നാളെ മൂതൽ വിതരണം ചെയ്യും

കേരളത്തിന് ഇന്ന് ആശ്യാസദിനം

കമാൻഡർ കൊല്ലപ്പെട്ടു അഞ്ചു സൈനികർക്ക് വീരമൃത്യു

ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം

പ്രതിരോധത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു

ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ആദരം അർപ്പിച്ച് കാശ്മീർ മുതൽ തിരുവനന്തപുരം വരെയും അസമിലെ ദിബ്രുഗഡ് മുതൽ ഗുജറാത്തിലെ കച്ച് വരെയും സൈനൃം ഫ്ളൈറ്റ്പാസ്റ്റും പുഷ്പവൃഷ്ടിയും നടത്തി വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

തുടർന്ന് എയിംസ് ഉൾപ്പെടെ വിവിധ ആശുപത്രികൾക്ക് മേൽ സേനാ ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി

കേരളത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ആരോഗ്യപ്രവർത്തകർക്ക് മേൽ സേനാ ഹെലികോപ്ടറുകൾ പുഷ്പവൃഷ്ടി നടത്തി

സൈനികോദ്യോഗസ്ഥർ ജീവനക്കാർക്ക് ആശംസ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് എത്തി സൈനികോദ്യോഗസ്ഥർ ആദരം അർപ്പിച്ചു

ആദരവിന്റെ ഭാഗമായി കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എറണാകുളം ജനറൽ ആശുപത്രി സന്ദർശിച്ചു മുതിർന്ന ഡോക്ടർമാർ മുതൽ ശുചീകരണ വിഭാഗം ജീവനക്കാർ വരെയുള്ളവർ സാമൂഹിക അകലം പാലിച്ച് ആശംസ സ്വീകരിക്കാൻ അണിനിരന്നു വൈകുന്നേരം രാജ്യത്തെ വിവിധ തീരങ്ങളിലെ നാവികസേനാ കപ്പലുകളിൽ ആദരസൂചകമായി ദീപം തെളിഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അക്കൌണ്ട് നമ്പർ അടിസ്ഥാനത്തിലായിരിക്കുക ബാങ്കുകളിൽ നിന്ന് പണംനൽകുക

വർദ്ധിതവീര്യത്തോടെ മഹാമാരിയെ നേരിടാനുള്ള ഊർജം എല്ലാവരിലും നിറയ്ക്കുന്നതായിരുന്നു പ്രദർശനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർധൻ ട്വീറ്റ് ചെയ്തു ഇന്ന് കോവിഡ് പ്രതിരോധത്തിനുള്ള പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം പകരുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറും ട്വിറ്ററിൽ കുറിച്ചു

മുക്ത്സർ സാഹിബിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ ആറു മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഉൾപ്പെടുന്നു

ഹോട്ട് സ്പോട്ടുകളിലൊഴികെ ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ അന്തർ ജില്ലാ യാത്രയ്ക്ക് അനുമതിയുണ്ട്

ഒരു മാസത്തിനുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷനായി നിയോഗിക്കപ്പെട്ട ഡോ

ആനന്ദബോസ് ഐ

എസ് ആകാശവാണിയോട് പറഞ്ഞു

മരിച്ചവരിൽ ഒരു പൊലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു

കേണൽ അശുതോഷ് ശർമ്മി ടൂ മേജർ അനുജ് ജമ്മുകാശ്മീർ പൊലീസ് സബ് ഇൻസ്പ്പ്പക്ടർ ഷക്കീൽ ഖാസി എന്നിരാണ് ഏറ്റുമുട്ടലിൽ വീരമൃത്യൂ പ്പിച്ചത്

ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യു അതൃന്തം വേദനാജനകവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സൈനികർ കാട്ടിയ അസാമാന്യ ധൈര്യവും രാജ്യത്തെ രക്ഷിക്കാൻ നടത്തിയ ജീവത്യാഗവും രാജ്യം എന്നും ഓർക്കുമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു ധീര രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ലോക മാധ്യമ സ്വാതന്ത്രൃ ദിനത്തോട് അനുബന്ധിച്ച് കഠിനാധാനികളും പത്രധർമ്മം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ കോവിഡ് പ്രതിരോധത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം പ്രശംസിച്ചു

വിദേശ ഉത്പന്നങ്ങൾക്കു പകരമായി ഇന്ത്യൻ ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം വൃവസായ സംരംഭകരോട് ആഹ്വാനം ചെയ്തു